പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ആശയങ്ങൾ പങ്കു വയ്ക്കും

സിക്കിം അതിർത്തി പോസ്റ്റുകളിലെ ഐസ്നികരുമായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ആശയവിനിമയം നടത്തും

രാജ്യത്ത് കോവിഡ് പ്ലികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം ന് ഏഴു ലക്ഷത്തിൽ താഴെയായി തുടരുന്നു കോവിഡ് വാക്സിൻ ഉടൻ എത്തുമെന്ന് കേന്ദ്ര ആരോഗൃമന്ത്രി ഹർഷ് വർദ്ധൻ

ആയിരത്തിലധികം പേർ

ഐപിഎല്ലിൽ ഇന്നലെ കൊൽക്കത്തയ്ക്കും പഞ്ചാബിനും ജയം

മൻ കി ബാതിന്റെ എഴുപതാം പതിപ്പാണിത് തുടർന്ന് പ്രാദേശിക ഭാഷകളിൽ പരിഭാഷയുണ്ടാകും

ബോർഡർ റോഡ് ഓർഗഉന്നെസേഷന്റെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ രാജ്നാഥ് സ്റ്റിങ് സൈനികർക്കൊപ്പം ആയുധപൂജയിലും പങ്കെടുക്കും

ദൂരദർശന് നൽകിയ അഭിമുഖത്തിലാണ് ആരോഗ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഉത്സവകാലത്ത് ജനങ്ങൾ കോവിഡ് ചട്ടങ്ങൾ പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു

ഇത് സംബന്ധിച്ച സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ചു കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവനക്കാർ തന്നെയാകും മുഖം അടുത്ത ബന്ധുക്കളെ കാണിക്കുക

സംസ്കാരത്തിൽ പങ്കെടുക്കുന്ന എല്ലാപേരും ആരോഗൃ വകുപ്പിന്റെ നിർദേശങ്ങളനുസരിച്ച് വീട്ടിലെ നിരീക്ഷണത്തിൽ കഴിയണമെന്നും നിർദ്ദേശമുണ്ട്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡുവും ജനങ്ങൾക്ക് ആശംസകളറിയിച്ചു ഇന്ത്യയുടെ സാംസ്കാരിക ഒരുമയ്ക്ക് മാറ്റുകൂട്ടുന്നതിനൊപ്പം നന്മയുടെ പാതയിൽ ഒത്തൊരുമയോടെ കഴിയാൻ ആഘോഷം പ്രചോദനമേകുമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ അറിയിച്ചു അതേസമയം ദസറ ആഘോഷങ്ങളിൽ ജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഉപരാഷ്ട്രപതി സന്ദേശത്തിൽ വ്യക്തമാക്കി തിന്മയുടെ മേൽ നന്മ വിജയം കൊയ്തതിന്റെ ഓർമപ്പെടുത്തലാണ് ദസറയെന്നും ഉത്തമപുരുഷനായ ശ്രീരാമന്റെ ഉദാത്ത ജീവിതമാണ് ആഘോഷം ഓർമിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

രാജ്യത്തെ ഏറ്റവും വലിയ ഹൃദയ ആശുപത്രി യുഎൻ മെഹ്ത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി ആൻഡ് റിസർച്ച് സെന്റർ ജുനഗഡിലെ ഗിർനർ ഹിൽ റോപ്പ് വേ പദ്ധതി കിസാൻ സൂര്യോദയ പദ്ധതി തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി ഇന്നലെ നാടിനു സമർപ്പിച്ചത് കർഷക്രൂടെ ജീവിതത്തിൽ സമൃദ്ധി ഉറപ്പാക്കാൻ കിസാൻ സൂര്യോദയ്ക്പിട്ടുതിക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാൾ പ്രകടിപ്പിച്ചു ഗുജറാത്തിലെ ഗിർ സോമനാഥ് പടാൻ ദാഹോദ്ട് ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തില്ലിട്ടിണ് പദ്ധതി നടപ്പാക്കുന്നത്

ഇ

എച്ച് എസ് മാർക്കിറ്റ് ആതിഥ്യം വഹിക്കുന്ന ഇന്ത്യ എനർജി ഫോറം സെറാവീക്ക് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു

കളിയിൽ ഉടനീളം കരുത്തരായ ഡൽഹിക്ക് മേൽ ആധിപത്യം സ്ഥാപ്പിക്കാൻ കൊൽക്കത്തയ്ക്ക് കഴിഞ്ഞു

ക്രിസ് ജോർദ്ദാൻ അർഷ് ദീപ് സിംഗ് എന്നിവർ ഹൈദെരാബാദിന്റെ മൂന്നു വിക്കറ്റുകൾ വീതം വീഴ്ത്തി കളി നിയന്ത്രിച്ചു

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഭവന വാഹന വിദ്യാഭ്യാസ വായ്പകൾ എം

ഇ് വായ്പ ക്രെഡിറ്റ് കാർഡ് തിരിച്ചടവ് വ്യക്തിഗത വായ്പ്പക്കൾ തുടങ്ങിയവയ്ക്ക് ഇത് പ്രകാരം കൂട്ടുപലിശയിൽ ഇളവ് ലൂഭിക്കും

രണ്ട് കോടിയിൽ താഴെ വരുമാനമുള്ളവർക്കാണ് വാർഷിക തിരിച്ചടവ് ഫയൽചെയ്യാനുള്ള സൌകര്യമുള്ളത് അഞ്ച് കോടിയിലധികം വാർഷിക വരുമാനമുള്ള നികുതിദായകർക്കും റികൺസിലിയേഷൻ സ്റ്റേറ്റ് മെന്റ് സമർപ്പിക്കാനുള്ള അവസരമുണ്ട്

ഇന്ത്യയ്ക്കും ്ക്ക് ഐക്യരാഷ്ട്രസഭയ്ക്കുമിടയിലെ ദീർഘകാലബന്ധത്തെ അന്റാവരണം ചെയ്യുന്ന സ്റ്റാമ്പുകളാണ് ഇതിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കുന്നത്

പ്രദേശത്തെ വിദ്യാഭ്യാസ കേന്ദ്രത്തിന് സമീപമെത്തിയ ചാവേറിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞ് തടയുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്ന് അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അപകടം നടക്കുമ്പോൾ നിരവധി കുട്ടികൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട്

പദ്ധതി സംബന്ധിച്ച ഓർഡിനൻസിന്റെ കാലാവധി ജൂണിൽ അവസാനിച്ചിരുന്നു